കോവിഡ് മഹാമാരി നമുക്ക് നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

മലയാളികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള തടസ്സം ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൃത്തയച്ചു

കുഞ്ഞിന് ജന്മനാ ആരോഗൃപ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി മന്ത്രി കെ

ഇടപെടൽ നടത്താനായതായി കേന്ദ്ര സർക്കാർ

പഞ്ചായത്തീരാജ് ദിവസമായ ഇന്ന് വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ രാജ്യത്തെ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നുള്ള പ്രതിനിധികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം പഞ്ചായത്തുകൾ കൂടുതൽ ശക്തിപ്പെടേണ്ടതുണ്ടെന്നും ഇതിലൂടെ മാത്രമേ ജനാധിപത്യം ശക്തമാകുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു ഗ്രാമങ്ങളിലും സ്വരാജ് എന്ന ആശയം എത്തിക്കുന്നതിനുള്ള ദിവസമാണ് ഇതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു

ഇ ഗ്രാം സ്വരാജ് പോർട്ടലും മ്ലൊബ്ൽ ആപ്പും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു പഞ്ചായിത്തുകളെക്കുറിച്ചുള്ള സമഗ്ര വിവരങ്ങളാണ് ഈ പോർട്ടലിൽ ഉള്ളത് ഗ്രാമീണ മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനാണ് സർക്കാർ പരിശ്രമിക്കുന്നതെന്ന് വീഡിയോ കോൺഫറൻസിങ്ങിൽ പ്രധാനമന്ത്രിക്കൊപ്പമുണ്ടായിരുന്ന കേന്ദ്രമന്ത്രി നരേന്ദ്രസിങ്ങ് തോമർ വ്യക്തമാക്കി ഇത്ത്വണ ഉത്തർപ്രദേശിലെ ത്സാൻസിയിൽ നടക്കേണ്ടിയിരുന്ന പഞ്ചായത്തീരാജ് ദിവസ് ആഘോഷങ്ങളാണ് കൊറോണ വൈറസ് വ്യാപനത്തെ തുടർന്ന് വീഡിയോ കോൺഫറൻസിങ്ങിൽ ഒതുങ്ങിയതെന്നും അദ്ദേഹം പറഞ്ഞു ഏഴ് സംസ്ഥാനങ്ങളിലെ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നുള്ള പ്രതിനിധികളാണ് വീഡിയോ കോൺഫറൻസിങ്ങിൽ പങ്കെടുത്തത്

മൃതദേഹങ്ങൾ നാട്ടിലേക്ക് അയക്കുന്നതിന് തടസ്സങ്ങളും പ്രയാസങ്ങളും നേരിടുന്നതായി ജി സി സി രാജ്യങ്ങളിലെ മലയാളി സംഘടനകളിൽ നിന്ന് ധാരാളം പരാതികൾ ലഭിക്കുന്നുണ്ട് മൃതദേഹങ്ങൾ നാട്ടിലേക്ക് അയക്കുന്നതിന് ഇന്ത്യൻ എംബസികൾ കേന്ദ്ര ആഭ്യന്തര മന്താലയത്തിൽ നിന്ന് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വേണമെന്ന് നിർബന്ധിക്കുന്നു

ആഭ്യന്തര മന്ത്രലയത്തിന്റെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ തന്നെ മൃതദേഹങ്ങൾ അയക്കുന്നതിന് ക്തിയറൻസ് നൽകാൻ ബന്ധപ്പെട്ട എംബസികൾക്ക് നിർദേശം നൽകണം നൂലാമാലകൾ ഒഴിവാക്കി മൃതദേഹങ്ങൾ താമസമില്ലാതെ നാട്ടിലെത്തിക്കാനും കുടുംബാംഗങ്ങൾക്ക് അന്ത്യകർമങ്ങൾ നടത്താനും സൌകര്യമൊരുക്കണമെന്നും മുഖ്യമന്ത്രി കത്തിൽ ആവശ്യപ്പെട്ടു

രാജ്യമാകെ ലോക്ഡൌൺ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കേന്ദ്രത്തോട് ഇത്തരമൊരു നിർദ്ദേശം വയ്ക്കാനാകില്ലെന്ന് ഹൈക്കോടതി വൃക്തമാക്കി പ്രവാസികളെ നാട്ടിലെത്തിക്കുകയാണെങ്കിൽ കാറന്റൈൻ അടക്കമുള്ള സൌകര്യങ്ങൾ സംബന്ധിച്ച് വിശദാംശങ്ങൾ ലഭ്യമാക്കാനും കോടതി ആവശ്യപ്പെട്ടു

അതിനിടെ സ്പ്രിംഗ്ളർ ഇടപാട് സംബന്ധിച്ച കേസ് ഹൈക്കോടതി ഇപ്പോൾ പരിഗണിക്കുകയാണ്

കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തുമ്പോൾ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന കുഞ്ഞിനെ കോവിഡ് സ്പെഷ്യൽ വാർഡിലേയ്ക്ക് മാറ്റുകയായിരുന്നുവെന്ന് ആരോഗ്യമന്ത്രി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു

ഇന്ന് മുതൽ വൈകുന്നേരം അഞ്ച് മണിക്കാണ് വാർത്താസമ്മേളനം ആരംഭിക്കുക

ലോകാരോഗ്യ സംഘടനയിൽ അംഗങ്ങളായും രാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരുമായി വീഡിയോ കോൾഫ്റ്റസിങ്ങിലൂടെ സംവദിക്കുകയായിരുന്നു അദ്ദേഹം

കൊറോണ വൈറസ് വ്യാപനം തടയാനും കുറയ്ക്കാനും സാധിച്ചതായും പരിസ്ഥിതി വകുപ്പ് സെക്രട്ടറിയും എംപവേർഡ് ഗ്രൂപ്പ് ചെയർമാനുമായ സി

രോഗബാധിതരുടെ എണ്ണം ഇരട്ടിയാകുന്നതിനുള്ള സമയം കൂട്ടാനും സാധിച്ചതായി അദ്ദേഹം പറഞ്ഞു

ഇന്നലെ നടന്ന സാർക്ക് അംഗരാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരുടെ വീഡിയോ കോൺഫറൻസിങ്ങിലാണ് ഇന്ത്യ നിലപാട് അറിയിച്ചിരിക്കുന്നത് കൊറോണ മഹാമാരിയെ നേരിടാൻ പ്രാദേശിക തലത്തിലുള്ള സഹകരണം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച വീഡിയോ കോൺഫറൻസിങ്ങിന്റെ അദ്ധ്യക്ഷപദവി വഹിച്ചത് പാകിസ്ഥാനാണ്

ഭാരത് ചേമ്പർ ്ലൂഓഫ് കൊമേഴ്സിന്റെ പ്രതിനിധികളുമായി ഇന്നലെ നടത്തിയ വ്വീഡ്രിയോ കോൺഫറൻസിങ്ങിലാണ് അദ്ദേഹം ഇദ്ദ്ൂകാര്യം ആവശ്യപ്പെട്ടത് കോവിഡാനന്തര വെല്ലുവിളികളും പ്പുതിയ് അവസരങ്ങളും എന്ന വിഷയത്തിൽ വിവിധ് മാധ്യമങ്ങളുമായും അദ്ദേഹം ചർച്ച നടത്തി